പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ

കേജ്രിവാളിന്റെ തുടർച്ചയായ മൂന്നാം ഊഴമാണ്ട് ഇത്

ടീമിന് വെങ്കലം

ബനാറസ് ഹിന്ദു സർവ്വകലാശാലയിലെ വേദാന്ത പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന പ്രധാനമന്ത്രിൂ നരേന്ദ്രമോദി പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ സ്മാരക കേന്ദ്രവ്വും ്രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഉപാധ്യായ കരകൌശല കേന്ദ്രത്തിൽ സംഘട്ടിപ്പിച്ചിരിക്കുന്ന ഏക്ക് കാശി അനേക് രൂപ് എന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നർവ്വഹിക്കും ഉത്തർപ്രദേശിലെ കരക്ക്ഇൾല വസ്തുക്കൾക്ക് ആഗോള വിപണി ഉറപ്പാക്കുകയാണ് പ്രദർശനുത്തിന്റെ ലക്ഷ്യം

വാരണാസി ഉജൈയിൻ ഓംങ്കാരേശ്വർ എന്നീ മൂന്ന് ജോതിർലിംഗ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് മഹാകാൽ എക്സ്പ്രസ്

തുടർച്ചയായ മൂന്നാം തവണയാണ് കേജരിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാവുന്നത് കഴിഞ്ഞ സർക്കാരിലെ എല്ലാ കാബിനറ്റ് മന്ത്രിമാരേയും ശ്രീ കേജ്രിവാൾ ഇത്തവണയും നിലനിർത്തുമെന്നാണ് സൂചന

എട്ട് സീറ്റുകൾ ബി ജെ

ക്ക് ലഭിച്ചു

അവസാനത്തെ വൃക്തിക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭിക്കണ്മെങ്കിൽ ഇത് കൂടിയേ കഴിയൂ ജബൽപൂരിൽ പണ്ഡിറ്റ് ദാരക്ട് പ്രിസാദ് മിശ്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആന്റ മാനുഫാക്ചറിംഗ്ലെ പ്പിദ്യാർത്ഥികളേയും അധ്യാപകരേയും അഭിസംബോധന ചെയ്യുകീയ്ടായിരുന്നു അദ്ദേഹം

ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടതുണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയോടൊപ്പം മുന്നോട്ട് പോകാനും ആദിവാസി സമൂഹം പ്രചോദനമേകുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു

പ്രദേശത്തെ വിഭവങ്ങളുടെയും നൈപുണ്യമുള്ള ആളുകളുടെയും ലഭ്യത അനുസരിച്ച് ആയിരിക്കണം ഇത്തരം സംരംഭങ്ങൾ സ്ഥാപിക്കേണ്ടത് വിദർഭയിലെ പരുത്തി ഉൽപ്പാദന മേഖലകൾക്ക് സൌരോർജ്ജ ഉൽപ്പാദന സംവിധാനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

പരവതാനികൾ ഷാളുകൾ മുള കൊണ്ടുള്ള ഉല്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന വിദ്ഗദ്ധ തൊഴിലാളികൾക്ക് കൃാമ്പിൽ പങ്കെടുക്കാം ജമ്മുകാശ്മീരിൽ നിർമ്മിക്കുന്ന കരകൌശല വസ്തുക്കൾക്ക് അമേരിക്ക യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള വർദ്ധിച്ച കയറ്റുമതി സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് സംഘടിപ്പിക്കുന്നത്

മുംബൈയിൽ സംഘടിപ്പിച്ച ഇന്ത്യ പോർച്ചുഗൽ വാണിജ്യ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നാലുദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് പോർച്ചുഗീസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത് വിശദാംശങ്ങളിലേക്ക്

പരസ്പരം മനസ്സിലാക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പോർച്ചുഗലും യൂറോപ്പിലെയും ഏഷ്യയിലെയും കേവലം രണ്ട് രാജ്യങ്ങളോ സംസ്കാരങ്ങളോ മാത്രമല്ല പ്രപഞ്ചങ്ങളായാണ് അവ ഇരുരാജ്യങ്ങളെയും വിശേഷിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള സമാധാനം സ്വാതന്ത്യം സുസ്ഥിര വികസനം എന്നിവയ്ക്കു വേണ്ടിയും കാലാവസ്ഥാ വൃതിയാനത്തിനെതിരെയും സഹകരിച്ചു പ്രവർത്തിക്കും

ഐ ഐ അസോച്ചം ഫിക്കി എന്നീ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രി അഗസ്റ്റോ സാന്റോ സിൽവ വിദേശകാര്യ സെക്രട്ടറി യൂറിക്കോ ബ്രൽഹാന്റേ ഡിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു സാമ്പത്തിക വളർച്ച നിക്ഷേപം വൃവസായം നൂതന സംരംഭകത്വം എന്നീ മേഖലകൾക്കാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ പിയൂഷ് ഗോയൽ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് അടിസ്ഥാന സൌകര്യ വികസനം എന്നീ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് പ്രിതിനിധിതല ചർച്ചകളും ഇന്നലെ നടന്നു

അതിനിടെ ഫ്രാൻസിലെ പാരീസിൽ കൊറോണ വൈറസ് ബാധിച്ച ഒരാൾ മരിച്ചു ചൈനീസ് പൌരനാണ് മരിച്ചത് കൊറോണ വൈറസ് ബാധിച്ച് ഏഷ്യക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യ മരണമാണിത്

വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ ഈ വിദ്യാർത്ഥിയുടെ തുടർപരിശോധനാ ഫലം നെഗറ്റീവാണ് ആരോഗൃനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു തൃശൂരിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയെ മാത്രമാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചവരിൽ ഇനി ഡിസ്ചാർജ് ചെയ്യാനുള്ളത്

ഭാസ്കരൻ അറിയിച്ചു

നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്

ദേശീയ ഇൻഫോർമാറ്റിക്സ് സെന്ററാണ് പോർട്ടൽ രൂപകല്പന ചെയ്തത്

ഇതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റ് സ്കീസണിലെ മത്സരങ്ങൾ പൂർത്തിയാവും